നരേന്ദ്ര മോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും

അന്തരിച്ചു

എസ്

കെ മോഹൻ ബഗാനും ജേതാക്കൾ

വീഡിയോ കോൺഫറൻസിംഗിലൂടെ നടക്കുന്ന ചടങ്ങിൽ അദ്ദേഹം ദേശീയ അറ്റോമിക് ടൈം സ്കെയിലും ഭാരതീയ നിർദ്ദേശക് ദ്രവൃയും രാഷ്ട്രത്തിന് സമർപ്പിക്കും ദേശീയ പരിസ്ഥിതി സ്റ്റാൻഡേർഡ് ലബോറട്ടറിക്കും പ്രധാനമന്ത്രി തറക്കല്ലിടും കേന്ദ്രമന്ത്രി ഹർഷവർദ്ധനും ചടങ്ങിൽ പങ്കെടുക്കും

ഭാരതീയ നിർദ്ദേശക് ദ്രവൃ നിലവിൽ വരുന്നതോടെ അന്താരാഷ്ട്ര നിലവാരത്തിൽ ലബോറട്ടറികളുടെ ഗുണനിലവാരം ഉറപ്പാക്കാനാവും

കേരളത്തിൽ വാഹനങ്ങൾക്കും വീടുകൾക്കും വ്യിവ്സായങ്ങൾ ക്കുമുള്ള ഇന്ധന ക്ഷാമത്തിന് ഇതോടെ ശാശ്വത പുരിഹ്ാർമാകും

കേരളത്തിലും കർണാടകയിലും പരിസ്ഥിതി സൌഹൃദ ഇന്ധനം വ്യാപകമാക്കുന്നതിൽ സുപ്രധാന നാഴികകല്ലാണ് പദ്ധതി

കേന്ദ്ര പെട്രോളിയം പ്രകൃതി വാതക മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കർണാടക ഗവർണർ വാജുഭായ് വാല മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി ബി

യെദ്യൂരപ്പ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി

ആറാംവട്ട ചർച്ചയിൽ കർഷകരുടെ രണ്ട് ആവശ്യങ്ങളിൽ ധാരണയായിരുന്നു

കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും രമൃമായ പരിഹാരത്തിൽ എത്തിച്ചേരാൻ ഇരുപക്ഷവും നടപടികൾ കൈക്കൊള്ളേണ്ട തുണ്ടെന്നും കേന്ദ്ര കൃഷി മന്ത്രി പറഞ്ഞു

തൊഴിലാളികളെ തട്ടിക്കൊണ്ടുപോയ പാക്ട് ത്രീവ്രവാദികൾ അവരെ വെടിവച്ചു കൊലപ്പെടുത്തിയതായും റീപ്പോർട്ടുകളുണ്ട് ന്യൂനപക്ഷ സമുദായത്തിലെ ഷിയ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കാണ് ജീവഹാനിയുണ്ടായത് തീവ്രവാദ സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തായാണ് സൂചന

ഗുട്ട്ക പാൻമസാല പുകയില ഉത്പന്നങ്ങളുടെ നിർമ്മാണവും രഹസ്യ വിതരണവും നടക്കുന്ന കാരൃം കേന്ദ്ര ജി

ബംഗളുരു എയർപോർട്ടിലേക്കുള്ള യാത്രികർക്ക് ഇത് ഏറെ പ്രയോജനപ്പെടും അഞ്ച് കിലോമീറ്റർ ദൂരമാണ് സ്റ്റേഷനും വിമാനത്താവളവുമായുള്ളത് ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസങ്ങളിലുമുള്ള ട്രെയിനുകൾ സാധാരണക്കാർക്ക് താങ്ങാവുന്ന കുറഞ്ഞ നിരക്കിലാണ് സർവ്വീസ് നടത്തുക

ചുരുങ്ങിയ സമയം കൊണ്ട് ട്രെയിനുകൾ വൃത്തിയാക്കാൻ സംവിധാനം സഹായിക്കൂമെന്ന് പശ്ചിമ റെയിൽവേ മുഖ്യ വക്താവ് സുമിത്പ് ്രാക്കൂർ പറഞ്ഞു ഈ സംവിധാനത്തിലൂടെ ഡിപ്പോയ്ക്ക് ്ട് െലക്ഷം രൂപയോളം ലാഭിക്കാൻ സാധിക്കുമെന്നാണ് വ്വില്യ്യിരുത്തലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

ഭൂരിഭാഗം സ്കൂളുകളും നഗരത്തിന്റെ കിഴക്ക് വടക്ക് മേഖലകളിലുള്ളവയാണ്

നിലവിൽ രണ്ട് വാക്സിനുകളുടെ ഉപയോഗത്തിനാണ് സംഘടന പിന്തുണ നൽകിയത് സംഘട്ടന്ന്യുടെ തെക്ക് കിഴക്കൻ ഏഷ്യാ മേഖലയിൽ ആദ്യഘട്ടക്ക് ്വുക്സിൻ ഉപയോഗം അനുവദിച്ചതായി റീജിയണൽ ഡയറക്ടർ ഡോ

മേഖലയിലെ കോവിഡ് വ്യാപനം ശക്തമായി പ്രതിരോധിക്കാൻ ഈ നടപടി സഹായിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു

ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യാ വ്യാപാർ മണ്ഡലിന്റെ നേതൃത്വത്തിൽ ഇന്നലെ നടന്ന യോഗത്തിലാണ് വൃാപാരികൾ ആവശ്യം ഉന്നയിച്ചത് കോവിഡ് സാഹചര്യത്തിൽ ജനങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിനിടയിൽ പലരുടേയും ജീവൻ അപകടത്തി ലായതായി വ്യാപാരികൾ പറഞ്ഞു

ഇന്ത്യയിൽ നിന്ന് യു

യിലേക്കുളള വിമാന സർവീസുകൾ ജനുവരി ആറ് മുതൽ ആരംഭിക്കും തിരികെ ഇന്ത്യയിലേക്കുളള വിമാന സർവീസുകൾ ജനുവരി എട്ട് മുതലായിരിക്കും പുനഃരാരംഭിക്കുക

രാജ്യത്തെ ചിലയിടങ്ങളിൽ വരുന്ന ആഴ്ചകളിൽ നിയന്ത്രണം കൂടുതൽ ശക്തമാക്കും അതിനിടെ രാജൃത്തെ മിക്കയിടങ്ങളിലും പ്രൈമറി സ്കൂളുകൾ തുറക്കുന്ന തീരുമാനത്തെ അദ്ദേഹം ന്യായിക്കരിച്ചു

ഇന്നല്ലെ ദേഹാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിലെത്തിച്ച അദ്ദേഹ്ത്തിന് പിന്നീട് കോവിഡ് സ്ഥിരീകരിച്ചു

ചലച്ചിത്ര ഗാനരചനാ രംഗത്തും സാഹിത്യത്തിലും തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അനിൽ പനച്ചൂരാന്റെ നിര്യാണം മലയാള സിനിമയ്ക്കും സാംസ്കാരിക കേരളത്തിനും തീരാനഷ്ടമാണെന്ന് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ അനുശോചിച്ചു

എസ് എൽ ഫുട്ബോളിൽ ഇന്നലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് എ ടി

മറ്റൊരു മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ഒഡീഷയ്ക്കെതിരെ ഈസ്റ്റ് ബംഗാൾ വിജയം നേടി ഇന്ന് ചെന്നൈയിൻ എഫ് സി ഹൈദരാബാദിനെ നേരിടും

സി സി ഐ പ്രസിഡന്റ് സൌരവ് ഗാംഗുലിയുമായി ഫോണിൽ സംസാരിച്ച് ക്ഷേമാന്വേഷണം നടത്തി

മുൻ ഇന്ത്യൻ ക്യാപ്റ്റന് രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും ആശംസകൾ എത്തുന്നുണ്ട്